സംഭരണവും തുടരുമെന്ന് കർഷകർക്ക് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ ഉറപ്പ്

പട്ടിണി അകറ്റുക എ്ന്നത് ബഹുമുഖ വെല്ലുവിളി

റൈഡേഴ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് ജയം

രാജൃത്തിന്റെ ഭക്ഷൃ സുരക്ഷ ഉറപ്പാക്കാൻ ഇതുരണ്ടും അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ ലോകഭക്ഷ്യദിനത്തോട് അനുബന്ധിച്ചുള്ള പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോവിഡ് മഹാമാരി കാലത്തും ഭക്ഷ്യ വിതരണ ശൃംഖല തകരാതെ കാത്തിൽ രാജ്യത്തെ കർഷകർ വലിയ പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ ചെറുകിട കർഷകരുടെ ജീവിതത്തിൽ വിപ്തവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടാണ്ട് മീലിയതോതിലുള്ള കർഷക ഉൽപാദ സംഘടനകളുടെ ശ്രീംഖ്ലയ്ക്ക് രൂപം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു

കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ ഈ സംസ്ഥാനങ്ങളിൽ വർധന രേഖപ്പെടുത്തിയ സാഹചര്യത്തി ലാണിത് ഓരോ സംഘത്തിലും ഒരു ജോയിന്റ് സെക്രട്ടറി പൊതുജനാരോഗ്യ കാര്യങ്ങൾ പരിശോധിക്കുന്ന വിദഗ്ദ്ധൻ രോഗബാധ തടയാനുള്ള നടപടികൾ സ്വീകരിക്കാനായും സംസ്ഥാനം സ്വീകരിച്ചിരിക്കുന്ന ചികിത്സാനിർവഹണ മാർഗനിർദേശങ്ങൾ പരിശോധിക്കാനുള്ള ആരോഗൃവിദഗ്ധൻ എന്നിവർ സംഘത്തിലുണ്ടാകും കണ്ടെയ്ൻമെന്റ് നിരീക്ഷണം പരിശോധന രോഗവ്യാപന നിയന്ത്രണ നടപടികൾ രോഗബാധിതരുടെ ചികിത്സ തുടങ്ങിയവ ശക്തിപ്പെടുത്തുന്നതിനുള്ള സംസ്ഥാനങ്ങളുടെ ശ്രമങ്ങൾക്ക് കേന്ദ്ര സംഘം പിന്തുണയേകും സമയബന്ധിതമായ രോഗനിർണയവും തുടർനടപടികളുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ ഫലപ്രദമായി കൈകാരൃം ചെയ്യാനും മാർഗനിർദേശം നൽകും

രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും കേന്ദ്രത്തിൽ നിന്നുള്ള സാധ്യമായ പിന്തുണ നൽകുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി

ലോകത്ത് ഒരുനേരത്തെ അന്നത്തിനായി പോലും ബുദ്ധിമുട്ടുന്ന ജനതയുടെ പ്രതിസന്ധിയും പോരാട്ടവും രാജ്യന്തരശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത് ദാരിദ്ര്യം എന്നത് ലോകംനേരിടുന്ന ബഹുമുഖപ്രതിസന്ധിയാണെന്ന് ഐകൃരാഷ്ട്രസഭ വികസനപദ്ധതിയായ യുഎൻഡിപിയുടെ ഇന്ത്യൻ ഡെപ്യൂട്ടി റസിഡന്റ് നാദിയ റഷീദ് ആകാശവാണിയോട് പറഞ്ഞു

അവയെ എല്ലാം ഒന്നിച്ച് പരിഹരിച്ചുകൊണ്ടല്ലാതെ പ്രതിസന്ധി പ്രിഹരിക്കാനാകില്ലെന്നും അവർ പറഞ്ഞു എല്ലാവർക്കും സാമൂഹിക്കും പരിസ്ഥിതികവുമായ നീതി ഉറപ്പാക്ക്യാൻ ഒറ്റക്കെട്ടായ് പ്രവർത്തിക്കാം എന്നതാണ് ഇക്കൊല്ലം ദിനാചരണത്തിന്റെ സന്ദേശമായി ഐക്യരാഷ്ട്രസൂഭ്യപ്രഖ്യാപിച്ചിരിക്കുന്നത്

പരസ്പരസഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ചിലി മുംബൈയിൽ സ്ഥാനപതികാര്യാലയം തുറക്കും

വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കറും ചിലിയൻ വിദേശകാര്യമന്ത്രി ആന്ദ്രേസ് അൽമണ്ട് സവാലയും നേതൃത്വം നൽകി

കോവിഡ് വ്യാപനം മൂലമുണ്ടായ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘതത്തെ അതിജീവിക്കാൻ ഇന്ത്യൻ സർക്കാർ നിരവധി ശക്തമായ ചുവടുവയ്പ്പുകൾ നടത്തിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു മഹാമാരികാലത്തെ മുന്നേറ്റത്തിന് ലോകരാജൃങ്ങളുടെ ഒറ്റക്കെട്ടായ ഇടപെടലാണ വേണ്ടതെന്നും അവർ ചൂണ്ടിക്കാട്ടി

സംസ്ഥാനങ്ങൾക്ക് വികസനകാര്യങ്ങളർക്കായ് പ്രത്യേകമായി പണംകണ്ടെത്താനുള്ള അവസരമാണ്ടിൽ

ഓരോ ദിവസവും ദുർഗയുടെ ഓരോ രൂപത്തെയാണ് ആരാധിക്കുന്നത് ആദ്യ ദിവസമായ ഇന്ന് ദുർഗാ ദേവിയെ ശൈലപുത്രിയായി ഉത്തരേന്തൃയിൽ ആരാധിക്കുന്നു

കേരളത്തിൽ നവരാത്രി പൂജകൾക്ക് തുടക്കം കുറിച്ച് കന്യാകുമാരി പദ്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നുള്ള വിഗ്രഹങ്ങൾ ഇന്നലെ തലസ്ഥാനത്തെത്തി

ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് ഇന്ന് നടക്കും ആറു മാസങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ശബരിമല നട തീർത്ഥാടകർക്കായി തുറന്നുകൊടുക്കുന്നത് ഇന്ന് പുലർച്ചെ അഞ്ചിന് നട തുറന്ന് നിർമ്മാലൃദർശനവും നെയ്യഭിഷേകവും നടത്തി രാവിലെ എട്ട് മണിയോടെയാണ് മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് ആദ്യം ശബരിമല മേൽശാന്തിമാരുടെ നറുക്കെടുപ്പാണ് നടക്കുക

ഭക്തർ എത്തുന്ന വാഹനങ്ങൾ പമ്പയിൽ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഗുണനിലവാരമുള്ളതും വീണ്ടും ഉപയോഗിക്കാവുന്നതുമായ മാസ്കുകൾ കരുതണം

കൂട്ടമായി നടക്കാനോ മല കയറാനോ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു

റെയിൽവേ സ്റ്റേഷനുകൾ ട്രെയിനുകൾ എന്നിവിടങ്ങളിൽ കൊറോണ വൃാപനം ചെറുക്കുന്നതിനായി യാത്രക്കാർക്കിടയിൽ അവബോധം സൃഷ്ടിക്കാൻ മന്ത്രാലയം നിർദ്ദേശം നൽകി യാത്രാ സമയത്ത് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മേരി സഹേലി എന്ന പുതിയ പദ്ധതി ആരംഭിച്ചതായും മീന്ത്രാലയം അറിയിച്ചു

മുഖ്യമന്ത്രി യോഗി അദിത്യനാഥിന്റെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭായോഗമാണ് തീരുമാനമെടുത്തത് രണ്ടായിരംകോടിരൂപയോളം ചെലവ് പ്രതീക്ഷിക്കുന്നു

ഇരു രാജ്യങ്ങളുടെയും സൈനിക സഹകരണം വർധിപ്പിക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം

സർക്കാർ ഭൂമിയിൽ കൃഷി ചെയ്തും വീടുവെച്ചും താമസിക്കുന്ന മറ്റെവിടെയും ഭൂമിയില്ലാത്ത കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്ന പദ്ധതിയാണിത് വർഷങ്ങളായി ഭൂമി കൈവശം വച്ചനുഭവിക്കുകയും കേരളത്തിൽ വേറെ എവിടേയും ഭൂമിയില്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ അപേക്ഷകൾ കാലങ്ങളായി കെട്ടിക്കിടക്കുന്നുവെങ്കിൽ സർക്കാരിന്റെ ശ്രദ്ധയിൽ പെടുത്താനുള്ള അവസരമാണിത്

ഇന്നലെ അബുദാബിയിലെ ഷെയ്ഖ് സയ്യിദ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം